കണ്ണൂരിലെ കളളവോട്ട് ആരോപ്പണം സംബന്ധിച്ച് ജില്ലാക ലക്ടർ പോളിംഗ് ഉദ്യോഗസ്ഥ്രിൽ നിന്ന് റിപ്പോർട്ട് ആവ ശ്യപ്പെട്ടു ലക്ഷറി ബസ്സ് ഉടമകളുടെ സമരത്തെ ശക്തമായി നേരിടു മെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ബംഗളുരുവിനെയും കൊൽക്കത്ത മുംബൈ യെയും നേരിടും ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ഫോണി ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൂലം സംസ്ഥാനത്തിന്റെ തീരത്ത് കടൽ പ്രക്ഷുബ്ധ മാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തി കടലിൽ പോയ തൊഴിലാളികൾ എത്രയുംവേഗം തിരിച്ചെത്തണ മെന്നും ഇപ്പോൾ കടലിലേക്ക് പോകാൻ പാടില്ലെന്നും സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി നിർദേശിച്ചു സംസ്ഥാനത്ത് അടുത്ത മൂന്നോ നാലോ ദിവസം പലയിടത്തും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് കിഴക്കൻമലയോര മേഖലയിൽ നാളെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്

എന്നാൽ തീരത്തുനിന്ന് ആയിരത്തിലേറെ കിലോമീറ്റർ ഭാഗത്ത് നിന്ന് അത് വഴിമാറിപോയേക്കുമെന്നും കാലാ വസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു തമിഴ്നാടിന്റെ തീര മേഖല യിൽ നാശമുണ്ടാക്കുന്ന തരത്തിൽ കാറ്റടിക്കാൻ സാധ്യതയില്ലെ ന്നാണ് അവർ കരുതുന്നത് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ വ്യനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മറ്റുന്നാൾ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോ ട് വയനാട് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ് ഒഴിവാക്കണമെന്ന് ഇന്ത്യാ ഗവൺമെന്റ് നിർദേശിച്ചു അടിയന്തര യാത്രകൾ ആവശ്യമാണെ ങ്കിൽ കൊളംബോ കാൻഡി എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ഹൈക്ക മ്മീഷനുകളുമായോ ഹമ്പൻതോട്ട ജാഫ്ന എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായോ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്

ശ്രീലങ്കയിൽ ശക്തമായ സുര ക്ഷയും അടിയന്തരാവസ്ഥയും രാത്രികാലങ്ങളിൽ നിരോധനാ ജ്ഞയും ഏർപ്പെടുത്തിയിട്ടുണ്ട്

കണ്ണൂരിലെ കള്ളവോട്ട് ആരോപണം സംബന്ധിച്ച് ജില്ലാ കല ക്ടർ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടി അന്തിമ റിപ്പോർട്ട് ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുമെന്നാണ് വിവ രം കാസർകോട് ലോക്സഭാ മണ്ഡലത്തിലെ ചില്ല് ബൂത്തുകളിൽ കളളവോട്ട് നടന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാന ത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദേശ്പ്രകാരമാണ് കലക്ടർ റിപ്പോർട്ട് തേടിയത് കള്ളവോട്ടാണെന്ന് മനസിലായെങ്കിൽ മറ്റ് പാർട്ടികളുടെ പോളിങ് ഏജന്റുമാർ എന്തുകൊണ്ട് എതിർത്തില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആരാഞ്ഞു ഇക്കാര്യം ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ട് കളക്ടർമാരുടെ വിശദമായ റിപ്പോർട്ട് കിട്ടിയാലുടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും റീ പോളിങ് അടക്കം കാരൃങ്ങൾ കമ്മീഷൻ തീരുമാനിക്കുമെന്നും ടിക്കാറാം മീണ സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു സിപിഐഎമ്മിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കള്ളവോട്ടിന്റെ ആവശ്യമില്ലെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് പറഞ്ഞു ഏറെ തെരഞ്ഞെടുപ്പൂക്ൾ പാർട്ടി നേരിട്ടിട്ടുണ്ട് കള്ളവോട്ട് സംബന്ധിച്ച ആരോപണത്തിന് കണ്ണൂർ ജില്ലാസെക്രട്ടറി മറുപടി നൽകിയിട്ടുള ളതാണ് ഏതന്വേഷണത്തെയും നേരിടാൻ പാർട്ടി തയ്യാറാണെന്നും മന്ത്രി വാർത്താചാനലിനോട് പറഞ്ഞു ഓപ്പൺവോട്ട് ചെയ്യുന്ന ദൃശ്യം കളളവോട്ടായി ചില മാധ്യമ ങ്ങൾ കാണിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവർത്തിച്ചു

ലക്ഷറി ബസ്സുകളുടെ പരി ശോധന തുടരുമെന്നും നിയമം ലംഘിക്കാത്തവർ പരിശോധനയെ ഭയക്കേണ്ടെന്നും മന്ത്രി സ്വകാര്യചാനലിനോട് പറഞ്ഞു

ഇവർക്ക് നോട്ടീസ് നൽകിയതായും മോട്ടോർ വാഹനവകുപ്പ് അറിയിച്ചു

അന്തർസംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിൽ യാത്രക്കാരെ ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ബസ്സ് ഉടമ സുരേഷ് കല്ലടക്ക് ക്ലീൻചിറ്റ് നൽകിയിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് പൊലീസ് കമ്മീഷണർ അറിയിച്ചു

പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യംചെയ്യലിന് വിധേയരാക്കും

തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തീൽ കൊച്ചിയിലായിരുന്നു തെളിവെടുപ്പ് റിമാന്റിലായ ഏഴു പ്രതികളെ ഇന്നലെ നാലുദിവസത്തേക്ക് പൊലീസ് കസ്റ്റഡി യിൽ വിട്ടിരുന്നു കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് കെഎസ്ആർടിസി ബസ് സർവ്വീസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തമിഴ്നാട് ഘടകം മന്ത്രി എ കെ ശശീന്ദ്രന് കത്ത് നൽകി

എഐസിസി അംഗം ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്

സർവീസുകൾ മൂന്ന് മണിക്കൂറിലധികം വൈകുന്നതായി ഓപ്പ റേറ്റിംഗ് വിഭാഗം അറിയിച്ചു

തകരാർ ഇന്ന് വൈകിട്ടോടെ പരിഹരിക്കാനാവുമെന്ന് എയർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ അശ്വനി ലൊഹാനി അറിയിച്ചിരുന്നു യുഎഇ യുടെ ചരിത്രത്തിലാദ്യമായി പ്രവാസി നിയമത്തിൽ ഭേദഗതി വരുത്തി ഹിന്ദു പിതാവിനും മുസ്ലിം മാത്യാവിനും ജനിച്ച കുട്ടിക്ക് ഭരണകൂടം ജനന സർട്ടിഫിക്കറ്റ് നൽകി മലയാളിയായ കിരൺബാബുവിന്റെയും സനാം സാബു സിദ്ദിഖിന്റെയും ഒൻപത് മാസം പ്രായമായ പെൺകുട്ടിക്കാണ് സഹിഷ്ണുതാവർഷ ത്തിന്റെ ഭാഗമായി ഭരണകൂടം ജനനരേഖ നൽകിയത്

ഹരിത കേരളം മിഷൻ കുടുംബശ്രീ മിഷൻ ആരോഗ്യ്പകുപ്പ് കില ശുചിത്വമിഷൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് കൃാമ്പ് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നാലിന് ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹിയിൽ ബംഗളുരു റോയൽ ചാലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് കൊക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്തയിൽ മുംബൈ ഇന്ത്യൻസിനെയും നേരിടും ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് വിമുക്തി പദ്ധതിയുടെ ഭാഗമായി മലബാർ മാരത്തൺ നടത്തി

ആരോഗ്യ സർവകലാശാല ബിരുദ ദാന ചടങ്ങ് നാളെ തൃശൂർ മെഡിക്കൽ കോളേജ് അലൂമിനി ഹാളിൽ നടക്കും വൈസ് ചാൻ സലർ ഡോ

കെ സി നായർ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും കേന്ദ്ര സ്ഥാപനമായ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡവലപ് മെൻറ് അതോറിറ്റി കൊല്ലം ജില്ലയിലെ മത്സ്യ സംസ്കരണ കയറ്റുമതി സ്ഥാപനങ്ങളിലെ തൊഴിലാളി കൾക്ക് പരിശീലനപരിപാടി സംഘടിപ്പിച്ചു മുത്സ്യ സ്ംസ്കരണ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകിയത് പാലക്കാട് ജില്ലയിലെ കാട്ടാന് ശല്യം പരിഹരിക്കാൻ നടപടികൾക്കായി മറ്റന്നാൾ തിരുവനന്ത്പുരത്ത് ഉന്നതതല യോഗം ചേരും വാളയാർ മുതൽ മുണ്ടൂർ വരെ മലയോര മേഖലകളിൽ കാട്ടാനശല്യം ജീവ്വന് ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് യോഗം

പട്ടണക്കാട് കൊല്ലംവെളി കോളനിയിൽ ആദിഷയാണ് ഇന്നലെ മരിച്ചത് എസ് എസ് എൽസി മൂല്യ നിർണയം നാളെ സമാപിക്കും കഴിഞ്ഞ മാസം നാലിന് ആരംഭിച്ച മൂല്യനിർണയം മൂന്ന് ഘട്ടങ്ങളി ലായാണ് നടക്കുന്നത് ജീവനക്കാരുടെ പി എഫ് ഫണ്ട് ധനലക്ഷ്മി ബാങ്കിന്റെ കടപ്പ ത്രത്തിൽ നിക്ഷേപിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു പ്രളയവും സ്ത്രീപ്രവേശവും അയ്യപ്പൻ നേരത്തെ അറിഞ്ഞു വെന്ന് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചത് തെറ്റാണ് ഇതിന്റെ സാഹ ചര്യം പരിശോധിക്കും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗ സ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പത്മകുമാർ പത്തനംതിട്ട യിൽ വ്യക്തമാക്കി വിവാഹസദ്യ കഴിഞ്ഞ് കൈ കഴുകുന്ന വയോധികരുടെ മാല മോഷ്ടിക്കുന്നത് പതിവാക്കിയ രണ്ട് സ്ത്രീകളെ കാസർകോട് പൊലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശികളായ ജ്യോതി എന്ന വിദ്യ ജയന്തി എന്നിവരാണ് പിടിയിലായത്

കോഴിക്കോട് കട്ടിപ്പാറ മയിലാടം പാറയ്ക്കൽ ്രുഹ്യമ്മദ് നിയാസാണ് മരിച്ചത്

കാസർകോട് നീലേശ്വരത്ത് യുഡിഎഫ് വനിതാ ബൂത്ത് ഏജന്റിന്റെ ദേഹത്ത് മുളക്പൊടി കലക്കി ഒഴിച്ച സംഭവത്തിൽ രണ്ട് പേർക്കെതിരെ പൊലീസ് കേസെടുത്തു മഹിളാ കോൺഗ്രസ് നീലേ ശ്വരം മണ്ഡലം പ്രസിഡന്റ് കൂട്ടിയായ പളളിക്കരയിലെ വി എൻ പത്മാവതിയുടെ പരാതിയിലാണ് കേസ് തിരുവനന്തപുര് ടെലികോം സിറ്റിയുടെ ഭൂമിയിൽ നിന്ന് മണൽകടത്തിയ ക്രേസിൽ സിഡ്കോ മുൻ എം ഡി സജീവ് ബഷീ റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് അനുമതി നൽകിയതായി റിപ്പോർട്ട്